എം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം റാഞ്ചിയിൽ ദേശീയതല യോഗാ ദിനാചരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു പുതിയ മുത്തലാഖ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവത രിപ്പിക്കും ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന ധനമന്ത്രിമാരുമായി കേന്ദ്രമമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ചർച്ച നടത്തും കണ്ണൂർ ആന്തൂരിൽ പ്രവാസി വൃാപാരി ആത്മഹതൃ ചെയ്ത സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറി അടക്കം നാലുപേരെ സസ്പെൻഡ് ചെയ്തു ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ സെമി സാധ്യത ശക്ത മാക്കി മുൻ മന്ത്രി കെ

ആധുനികയോഗ നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എത്തേണ്ട സമയമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാവ പ്പെട്ടവരുടേയും ആദിവാസികളുടേയും ഉൾപ്പെടെ സാധാര ണക്കാരുടെ ജീവിതചര്യയിലേക്ക് യോഗാഭ്യാസം വ്യാപിക്ക ണമെന്ന് അദ്ദേഹം നിർദേശിച്ചു

യോഗാചര ണത്തിലൂടെ ഇതിനെ മറികടക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു യോഗയിലൂടെ ലഭിക്കുന്ന ആന്തരിക ശക്തി രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്നും പ്രധാ നമന്ത്രി പറഞ്ഞു റാഞ്ചിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനാച രണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഝാർഖണ്ഡ് മുഖ്യമന്ത്രി രഘുബർദാസ് ഉൾപ്പെടെ മുപ്പതി നായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡി യത്തിൽ ഉദ്ഘാടനം ചെയ്തു യോഗാ പരിശീലനം സംസ്ഥാന വൃാപകമാക്കുമെന്ന് മുഖൃമന്ത്രി പറഞ്ഞു മതപ രമായ ചടങ്ങല്ല യോഗയെന്നും ജാതി മത ഭേദമില്ലാതെ ആർക്കും യോഗ പരിശീലിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ സംസ്ഥാന പ്രാദേശിക തലങ്ങളിൽ നിരവധി യോഗാ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര യോഗദിനം പാലക്കാട് ജില്ലാതല പരിപാടി ഒ രാജഗോപാൽ എം

ജില്ലാ ഭരണകൂടം നെഹ്റു യുവകേന്ദ്ര വിശ്വ യോഗ പ്രചാരക സമിതി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ച ത് കോഴിക്കോട് ഉൾപ്പെടെ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥല ങ്ങളിലും യോഗാ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവേകാനന്ദ യോഗ വിദ്യാപീഠവും ബിജെപി ജില്ലാ കമ്മ റ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ദിനാചരണ പരിപാടി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു യോഗാദിനത്തിന്റെ ഭാഗമായി ബിജെപി കണ്ണൂർ ജില്ലാ കമ്മറ്റി സംഘടിപ്പിക്കുന്ന യോഗാ പരിശീലനം രാവിലെ ആരം ഭിച്ചു ബിജെപി ദേശീയ സമിതി അംഗം സി

പത്മനാഭൻ അടക്കം പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ദേശീയ ആയുഷ് മിഷന്റേയും ഭാരതീയ ചികിത്സാ ഹോമി യോപ്പതി വകുപ്പിന്റേയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല പരിപാടി പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തും ജില്ലാ കളക്ടർ പരിപാടി ഉദ്ഘാടനം ചെയ്യും ദക്ഷിണ റെയിൽവെ പാലക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യ ത്തിൽ രാവിലെ ഏഴേകാലിന് യോഗാദിനം ആചരിക്കും ഒലവക്കോട് ഹേമാമ്പിക നഗർ കല്യാണ മണ്ഡപത്തിലായി രിക്കും യോഗാ ദിനാഘോഷ ചടങ്ങ് യോഗയുടെ പരിപോഷണത്തിനും വികസനത്തിനും നൽകിയ വിശിഷ്ഠ സംഭാവനകൾക്ക് പ്രധാനമന്ത്രിയുടെ യോഗാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഗുജറാത്ത് ലൈഫ് മിഷനിലെ സ്വാമി രാജർഷി മുനി ഇറ്റലിയിലെ അന്റോണിയറ്റാ റോസി എന്നിവർക്കാണ് വൃക്തിഗത പുരസ്കാരങ്ങൾ ബീഹാ റിലെ മുൻഗേർ സ്കൂൾ ഓഫ് യോഗ ജപ്പാനിലെ ജപ്പാൻ യോഗാ നികേതൻ എന്നിവ സ്ഥാപനതല പുരസ്കാരങ്ങൾക്ക് അർഹരായി

പുതിയ മുത്തലാഖ് നിരോധന ബിൽ ഇന്ന് ലോക്സഭ യിൽ അവതരിപ്പിക്കും

ഒറ്റത്തവണ മുത്തലാഖിലൂടെ വിവാഹ ബന്ധം വേർപ്പെടുത്തുന്നത് തടയാനാണ് ബിൽ കൊണ്ടുവരുന്നത് ഇത്തരം നടപടിയിൽ ഏർപ്പെടുന്നത് ക്രിമി നൽ കുറ്റമായി പരിഗണിച്ച് തടവ് ശിക്ഷ നൽകുന്ന വ്യവസ്ഥ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ തടവ് ശിക്ഷ നൽകുന്ന തിനോട് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ശബ രി മല വിഷ യ ത്തിൽ ആർ എസ് പി അംഗം എൻ

പ്രേമചന്ദ്രൻ സ്വകാര്യ ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും ശബരിമലയിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നിന് മുമ്പത്തെ സ്ഥിതി തുടരാൻ വ്യവസ്ഥ ചെയ്യുന്ന ശബ രിമല ശ്രീ ധർമ്മശാസ്താ ടെമ്പിൾ ബില്ലാണ് സഭയിൽ അവ തരിപ്പിക്കുന്നത്

കഴിഞ്ഞ ദിവസങ്ങളിൽ സാമ്പത്തിക വിദഗ്ധരുമായും വിവിധ മേഖലകളിലെ പ്രതി നിധികളുമായും അവർ ചർച്ച നടത്തിയിരുന്നു

പാരമ്പര്യതനിമയും ആധുനിക നിർമ്മാണ രീതികളും സമന്വയിപ്പിച്ച് നിർമ്മിക്കുന്ന പ്രദർശന നഗരി വിനോദ സഞ്ചാര മേഖലക്ക് മുതൽകൂട്ടാകുമെന്ന് തിരുവന ന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു

ആന്തൂരിൽ പണിത പുതിയ ഓഡിറ്റോറിയത്തിന് ഉടമസ്ഥാവകാശ സർട്ടി ഫിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പ്രവാസി വൃാപാരി സാജൻ ആത്മഹത്യ ചെയ്തത് നഗരസഭാ സെക്രട്ടറിക്കു പുറമെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ മൂന്ന് ഉദ്യോഗ സ്ഥർക്കാണ് സസ്പെൻഷൻ പുതിയ ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ശേഷം ചേരുന്ന ആദ്യത്തെ ചരക്ക് സേവന നികുതി കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യ ക്ഷതയിലാണ് യോഗം വൈദ്യുതി വാഹനങ്ങളുടെ നികുതി നിരക്ക് കുറയ്ക്കൽ ലോട്ടറി നികുതി നിരക്ക് സംബന്ധിച്ച ഉപസമിതി റിപ്പോർട്ടിന്റെ പരിഗണന എന്നിവയടക്കം വിഷ യങ്ങൾ ഇന്നത്തെ യോഗം പരിഗണിക്കും

മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അപകടത്തിൽ അനുശോചനം അറിയി ച്ചു അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേ റ്റവർക്കും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ടിറ്ററിൽ അറിയിച്ചു ലോകകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് ഓസ്ട്രേലിയ സെമി ഫൈനൽ സാധ്യത ശക്തമാക്കി

ഇന്ന് ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും വൈകീട്ട് മൂന്നി നാണ് മത്സരം മുൻമന്ത്രി കെ

ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിൽ രാവിലെ ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഗൌരിയമ്മയെ കുറിച്ച് തയാറാക്കിയ ഡോക്യുമെന്ററി മുൻ മുഖ്യമന്ത്രി വി

ഗൌരിയമ്മ ഫൌണ്ടേഷന്റെ ഉദ്ഘാടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പുസ്തക പ്രകാശനം സ്പീക്കർ പി

എംഎൽഎമാർ അടക്കം നേതാക്കൾക്ക് ജന്മദിനാഘോ ഷത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകുന്നതിന് ഇന്നത്തെ നിയമസഭാ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ട് ഇന്നലെ പ്രത്യേക പരാമർശത്തിലൂടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിയമ സഭയുടെ ആദരം അറിയിച്ചിരുന്നു അരുണാചൽ പ്രദേശിൽ വ്യോമസേനാ വിമാനം തകർന്ന് മരിച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശി എൻ

രാവിലെ കുഴിമ്പാലോട്ട് പൊതുദർശ നത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതി കളോടെ സംസ്കരിക്കും കണ്ണൂർ വിമാനത്താവളത്തിൽ രണ്ട് കിലോയിലേറെ സ്വർണം പിടിച്ചെടുത്തു ഷാർജയിൽ നിന്നെത്തിയ കോഴി ക്കോട് പുതുപ്പാടി സ്വദേശി റമീസിനെ അധികൃതർ കസ്റ്റഡി യിലെടുത്തു അഞ്ചര കോടിയോളം രൂപ വില വരുന്ന സ്വർണ്ണമാണ് പിടികൂടിയത് കാസർകോഡ് ജില്ലയിൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു

വിവിധ രോഗങ്ങൾക്ക് ആയൂർവേദ തുള്ളിമരുന്നുകൾ വഴി പരിഹാരമുണ്ടാക്കാമെന്ന തെറ്റിധാരണാജനകമായ പരസ്യ ങ്ങൾ നൽകിയ ഡോക്ടറെ ട്രാവൻകൂർ കൊച്ചിൻ മെഡി ക്കൽ കൌൺസിൽ സസ്പെൻഡ് ചെയ്തു

കാൻസറും പ്രമേഹവും ഉൾപ്പെടെ നിരവധി രോഗ ങ്ങൾക്ക് തുള്ളിമരുന്ന് ചികിത്സ ഫലപ്രദമാണെന്ന പരസ്യ ങ്ങൾക്കെതിരെ കേരളാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകിയ പരാതിയിലാണ് നടപടി ഇടുക്കി ചിന്നക്കനാലിൽ സിഐടിയുവിന്റെ നേതൃത്വ ത്തിൽ ഗവൺമെന്റ് ഭൂമി കയ്യേറി കുടിൽക്കെട്ടൽ സമരം തുട ങ്ങി ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് പത്തു സെന്റ് സ്ഥലവും അതിൽ വീട് വെക്കാൻ ഗവൺമെന്റ് സഹായവും ആവശ്യപ്പെട്ട് കഴിഞ്ഞ പതിനാലിന് സിഐടിയു നേതൃത്തിൽ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ്ണ തുടങ്ങി യിരുന്നു സമരത്തിന്റെ അടുത്ത ഘട്ടമായാണ് ഇപ്പോൾ കുടിൽ കെട്ടി സമരം ആരംഭിച്ചത് ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾ ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നടത്തുന്ന സമരം എഴുപത്തിയഞ്ച് ദിവസം പിന്നിടുകയാണ് മാധ്യമങ്ങളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹരിയാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ചെയർമാനും മഖൻലാൽ ചതുർവ്വേദി ജേർണലിസം ആന്റ് മാസ് കമ്മ്യൂണിക്കേഷൻ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫ

കോഴിക്കോട്ടെ വിശ്വസംവാദ കേന്ദ്രം സംഘടിപ്പിച്ച പി

നെടുങ്ങാടി സ്മാരക പ്രഭാ ഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ബക്കളത്തെ കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് പ്രവാസി വ്യവസായി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ബിജെപി കണ്ണൂർ ജില്ലാ കമ്മറ്റി ആന്തൂർ നഗരസഭാ മാർച്ച് നടത്തും ധർമ്മശാലയിൽ നിന്നാരംഭിക്കുന്ന മാർച്ച് സംസ്ഥാന സെൽ കോ ഓർഡിനേറ്റർ കെ രഞ്ജിത് ഉദ്ഘാ ടനം ചെയ്യും കാസർകോട് കല്ല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക രുടെ കൊലപാതകക്കേസിൽ ഹോസ്ദുർഗ് കോടതിയിൽ പൊലീസ് കുറ്റപത്രം സമർപ്പിച്ചു

കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തിരുവല്ല നഗരസഭാ അംഗം കെ

മൂന്ന് വർഷം കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഹരികിഷോർ അറിയിച്ചു ഉയർന്ന ഭാഗങ്ങളിലെ ശുചീകരണത്തിനും അറ്റകുറ്റപ്പ ണിക്കും ഉപയോഗിക്കുന്ന സ്പൈഡർ ആർട്ടിക്കുലേറ്റഡ് ബൂം ലിഫ്റ്റ് കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രവർത്തന സജ്ജമാ ക്കി

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് അടുത്ത മാസം ഒന്നിന് സെക്രട്ടേറിയേറ്റിലേക്ക് മാർച്ചും ധർണ്ണയും നടത്തും